കാർഗിൽ വിജയ ദിവസമായ ഇന്ന് രാഷ്ട്രം ധീര സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു സൈന്യത്തെ പ്രകീർത്തിച്ച് രാപ്രഷ്ടപതിയും പ്രധാനമന്ത്രിയും

അസ്റ്റമിലെയും ബിഹാറിലെയും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു

ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ആത്മാഭിമാനം വാനോളം ഉയർന്ന ദിനം

രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരയോദ്ധാക്കളോടും അവരുടെ കുടുംബാംഗങ്ങളോടും രാഷ്ട്രം എന്നും കടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

അവരുടെ രാജ്യി സ്നേഹത്തിനും ധീരതയ്ക്കും രാജ്യം എല്ലായ്പ്പോഴും കടപ്പെട്ടിരീക്കുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു

ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സഹമന്ത്രി ശ്രീപദ്നായിക് കരസേനാ മേധാവി ജനറൽ എം

നരവനേ നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർസിംഗ് വ്യോമസേനാമേധാവി ആർ

ലോകത്തെ തന്നെ ഏറ്റവും ദുർഘടമായ കാർഗിൽ മലനിരകളിൽ നിന്നും ശത്രുക്കളെ തുരത്തി ത്രിവർണ്ണ പതാക ഉയർത്തിയ സേനാംഗങ്ങളുടെ അസാമാന്യ ധൈര്യത്തിന് മുന്നിൽ തല കുനിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

വിശദാംശ്ങ്ങളുമായി ജോസ്ന

രാജ്യത്തു പലയിടത്തും രോഗ വ്യാപനം കൂടുന്നതിനാൽ കൂടുതൽ ജാഗ്രത വേണമെന്നും മാസ്ക് ധരിക്കുന്നതിൽ അലസത പാടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോവിഡ് പ്രതിരോധത്തിന്റെ മുന്നണി പോരാളികളെ ഓർക്കണമെന്നും കോവിഡിനെതിരായ പോരാട്ടം വിജയിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമിപ്പിച്ചു ജമ്മുകശ്മീരിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയവരെ പ്രധാനമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു ശരിയായ വീക്ഷണത്തിലൂടെ സർഗാത്മകമായ കഴിവും നൈപുണ്യവും പ്രയോജനപ്പെടുത്തി ആപത്തിനെ അവസരമാക്കി മാറ്റാൻ രാജ്യത്തെ യുവാക്കളും സ്ത്രീകളും ശ്രമിക്കുന്നുണ്ടെന്നും അവരുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം വൃക്തമാക്കി ഇത്തരത്തിൽ നിരവധി പ്രചോദനാത്മകമായ സംഭവങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ കോവിഡ് പരിശോധനകൾക്ക് കരുത്ത് പക്കരുന്ന ഈ സൌകര്യങ്ങൾ വേഗത്തിലുള്ള രോഗനിർണയം സ്റ്റ്യോക്കുകയും അതുവഴി കോവിഡ് നിയന്ത്രണത്തെ സഹായിക്കുകയും ചെയ്യും

കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹാം

മരണസംഖ്യ ഒന്നര ലക്ഷത്തോടടുക്കുകയാണ്

അസമിൽ തുടർച്ചയായ മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ തകർന്ന പോയ അടിസ്ഥാന സൌകര്യങ്ങൾ പുനസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാന മന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്ര മന്ത്രി ജിതേന്ദ്ര സിംഗ് മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിനെ അറിയിച്ചു

കോവിഡ് പ്രതിസന്ധി കാരണം ശ്രീലങ്കയുടെ വിദേശ കരുതൽ ധനശേഖരം താഴ്ന്നതിനാലാണ് സഹായ നടപടിയെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു